മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും

അസ്സമിൽ ജലസേചനത്തിനായി ഒരു ലക്ഷം കുഴൽക്കിണറുകൾ ന് സ്ഥാപിക്കുന്നു

പ്രസിഡന്റ് ഗോതബായ രജപക്സെ ഇന്ന് ന്യൂഡൽഹിയിൽ എത്തും

തിരശ്ശീല ഉയരും

മുംബൈയിലെ ശിവജി പാർക്കിൽ വൈകിട്ടാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ശിവസേന എൻ സി പി കോൺഗ്രസ്റ്റ് സഖ്യം തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉദ്ധവ് താക്കറയെ കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുത്തത്

സി

നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനുള്ള സമയപരിധി ഡിസംബർ മൂന്ന് വരെയാണ് ശ്രീ ഉദ്ധവ് താക്കറെയ്ക്ക് ഗവർണർ ഭഗത് സിങ് കോഷിയാരി നൽകിയിട്ടുള്ളത്

രണ്ട് ദിവ്വസ്സ്ത്ത് സമ്മേളനം പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറും മുൻ ഐ

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പോലീസ് ഗവേഷണു വികസന ബ്യൂറോയും യു പി പോലീസും സംയുക്തമായാണ് സ്മ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്

മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ അധ്യക്ഷനായ ജലസേചന വകുപ്പിന്റെ യോഗത്തിലാണ് തീരുമാനമെടുത്തത്

സമ്പദ്വ്യവസ്ഥയുടെ ഉത്തേജനത്തിനായി ഗവൺമെന്റ് നിരവധി നടപടികൾ കൈക്കൊണ്ടു വരികയാണെന്ന് കേന്ദ്രമന്ത്രി നിർമലാ സീതാരാമൻ പറഞ്ഞു

മൂലധന നിക്ഷേപം ജി

ടി പരിഷ്കരണം നയരൂപീകരണം തുടങ്ങിയ അവയിൽ ചിലതാണ്

എസ്

ഗവൺമെന്റിന്റെ ഒത്റ്റായ്ട് നയങ്ങളും തീരുമാനങ്ങളും സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തിയിരായി കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ കുറ്റപ്പെടുത്തി

രാമകൃഷ്ണ മിഷൻ കാരുണ്യ ആശുപത്രിയുടെ പുതിയ മന്ദിരം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും

അക്ഷയ് പത്ര ഫൌണ്ടേഷനിലും ശ്രീ രാംനാഥ് കോവിന്ദ് സന്ദർശനം നടത്തും

ഭേദഗതി അനുസരിച്ച് പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തോടൊപ്പം ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന അടുത്ത ബന്ധുക്കൾക്കും മാത്രമെ എസ്

ജി സുരക്ഷാ പരിരക്ഷ ലഭിക്കൂ മുൻപ്രധാനമന്ത്രിമാർക്കും അവരോടൊപ്പം ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന അടുത്ത കുടുംബാംഗങ്ങൾക്കും സ്ഥാനമൊഴിഞ്ഞതിനുശേഷം അഞ്ച് വർഷം എസ്

ജി പരിരക്ഷ പ്രധാനമന്ത്രിക്ക് മാത്രം സുരക്ഷ കവചം ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ബിൽ സംബന്ധിച്ച് ചർച്ചകൾക്ക് മറുപടി പറയവേ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി ഭേദഗതി പ്രധാനമന്ത്രിയുടെ സുരക്ഷ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഉപകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ഭരണചെലവുകൾ കുറയ്ക്കാനും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പൌരന്മാർക്ക് മികച്ച സേവനങ്ങൾ ഉറപ്പാക്കാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നയങ്ങളിലും പദ്ധതികളിലും ഇതോടെ ഏകസ്വഭാവം കൊണ്ടുവരാൻ സാധിക്കും നിലവിൽ ദാദ്രയിൽ ഒന്നും ദാമൻ ദിയുവിൽ രണ്ടും ജില്ലകളാണ് ഉള്ളത്

ഇന്ന് വൈകുന്നേരത്തോടെയാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് ന്യൂഡൽഹിയിൽ എത്തുന്നത് ഔദ്യോഗിക പരിപാടികൾ നാളെ ആരംഭിക്കും

പിന്നീട് രാജ്ഘട്ടിൽ എത്തുന്ന രജപക്സെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശ്രീലങ്കൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച് നടത്തും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും ഗോതബായ രജപക്സെ സന്ദർശിച്ച് സംഭാഷണം നടത്തും വിദേശകാര്യമന്ത്രി എസ്

ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ഒരു പ്രവൃത്തിയും ശ്രീലങ്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ലെന്ന് രജപക്സെ വ്യക്തമാക്കിയിട്ടുണ്ട്

കേന്ദ്ര ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള വിഹിതവും ഈ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്

സീ റോഡിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് മഹാത്മാഗാന്ധി സർവ്വകിലാശാല എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര മേൽപ്പാലം പൂർത്തിയാകുന്നത്തോരിട്ട്സുഗമമാകും

മേൽപ്പാലം റെയിൽപ്പെയ്ും അപ്രോച്ച് റോഡ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനുമാ്ണ് നിർമ്മിക്കുക

രാവിലെ ഒൻപതിന് സ്പീക്കർ പി

തിരക്ക് കണക്കിലെടുത്ത് ഉച്ചക്ക് ശേഷം രണ്ട് മണി മുതൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

സി

ആദ്യ മത്സരം ഡിസംബർ ആറിന് ഹൈദരാബദിൽ നടക്കും

മറ്റ് മത്സരങ്ങളുടെ വേദികൾക്ക് മുമ്പ് നിശ്ചയിച്ചതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടില്ല

വടക്കൻ കുണ്ടൂസ് പ്രവിശ്യയിൽ താലിബാൻ സ്ഥാപിച്ച മൈൻ ഇവർ സഞ്ചരിച്ച വാഹന്ത്തിൽ തട്ടിയാണ് ദുരന്തമുണ്ടായത് ആറ് സ്ത്രീകളും ദുരന്തത്തിൽ ക്ട്രെല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയ വക്താവ് അറിയിച്ചു

എസ് പിന്തുണയുള്ള അഫ്ഗാൻ സൈന്യവുമായി നിരന്തരം ഏറ്റുമുട്ടൽ നടക്കുന്ന സ്ഥാലത്താണ് സ്ഫോടനമുണ്ടായത് കുണ്ടൂസ് നഗരം പിടിക്കാൻ താലിബാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് സ്ഫോടനങ്ങൾ

പ്രക്ഷോഭകർ ഇന്നലെ നജഫ് പട്ടണത്തിലെ ഇറാൻ കോൺസുലേറ്റിന് ്തീയിട്ടു കെട്ടിടത്തിൽ നിന്ന് ജീവനക്കാരെ നേരത്തെ ഒഴിപ്പിച്ചിരുന്നതിനാൽ സംഭവത്തിൽ ആൾനാശമുണ്ടായില്ല

കഴിഞ്ഞ മാസം കർബലയിലെ ഇറാൻ കോൺസുലേറ്റിലും ആക്രമണം നടത്തിയിരുന്നു പോലീസ് വെടിവയ്പ്പിൽ നാല് പ്രക്ഷോഭകർ കൊല്ലപ്പെട്ടു